പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളസ്വീകരണം

മുൻമന്ത്രി വി എസ് ശിവകുമാറിന് എതിരെ വിജിലൻസ് കേസ് റജിസ്റ്റർ ചെയ്തു

ലാൽബഹദൂർശാസ്ത്രി വിമാനത്താവളത്തിൽ ഗവർണർ ആനന്ദിവ്ബൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മന്ത്രിമാർ ബ്യിട്ട്ജ്പി

പ്ര കൂടുതൽ വിവരങ്ങളുമായി ല്ലീഖ്യത വിജയൻ ് വോയിസ് ഒരു ദിവസത്തെ വാരാണാസി സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി ജഗത്ഗൂരു വിശ്വാരാധ്യ ഗുരുകുൽ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്തു

ബനാറസ് ഹിന്ദു സർവ്വകലാശാലയിലെ വേദാന്ത പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ സ്മാരക കേന്ദ്രവും രാഷ്ട്രത്തിന് സമർപ്പിക്കും

ഉപാധ്യായ കരകൌശല കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഏക്ക് കാശി അനേക് രൂപ് എന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നർവ്വഹിക്കും

വന്യജീവി സംരക്ഷണവുമായി ബന്ധ്പ്പെട്ട മികച്ച മാതൃകകൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും

ദേശാടനക്കിളികളും ജീവികളും ഭൂമിയെ ബന്ധിപ്പിക്കുന്നു അവയെ നമുക്ക് സ്ഥാഗതം ചെയ്യാം എന്നതാണ് സമ്മേളനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇന്ന് നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കും

ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയാതെ കർത്തവൃ നിരതരാകുന്നവരാണ് പോലീസുകാർ പോലീസ് ജനങ്ങളുടെ ശത്രുവല്ല മിത്രമാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു രാജൃത്തിന്റെ വികസന്റത്തിൽ സ്തുത്യർഹമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ഡൽഹിപ്പോലിസ്്

ഡൽഹി രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്

തുടർച്ചയായ മൂന്നാം തവണയാണ് കേജരിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാവുന്നത്

മുംബൈയിൽ സംഘടിപ്പിച്ച ഇന്ത്യ പോർച്ചുഗൽ വാണിജ്യ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നാലുദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് പോർച്ചുഗീസ് പ്രസിഡന്റ് ഇന്തൃയിലെത്തിയത് സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ ആഗോള ശക്തിയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാതിപത്യ രാജ്യമായ ഇന്ത്യയെന്ന് പോർച്ചുഗീസ് പ്രസീഡന്റ് മാർസെലോ റബലോ ഡിസൂസ പറഞ്ഞു

ഇതിന്റെ ഭാഗമായി വിവിധ വകുപ്പ് തലവന്മാരോട് കൊൽക്കത്ത മുംബൈ ഹൈദ്രാബാദ് ചെന്നൈ അഹമ്മദാ ബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ സന്ദർശിക്കാൻ ജമ്മുകാശ്മീർ പൊതുഭരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് റോഡ് ഷോകളും നിക്ഷേപകരുമായി സംവാദങ്ങളും പരിപാടിയുടെ ഭാഗമായി നടത്തും

ദിദിന സന്ദർശനത്തിനായും യു

സൌദി അറേബ്യയുമായുള്ള നയതന്ത്ര പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് സൌദി വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും ശ്രീ

ഫ്രാൻസിലെ പാരീസിൽ കൊറോണ വൈറസ് ബാധിച്ച ചൈനീസ് പൌരൻ മരിച്ചു രോഗബാധയെ തുടർന്ന് ഏഷ്യക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ മരണമാണിത് കേരളത്തിൽ കൊറോണ വൈറസ് ബാധിച്ച് അതേസമയം കാസർഗോഡ് ചികിത്സയിലുള്ള വിദ്യാർത്ഥിയെ താമസിയാതെ വിട്ടയക്കുമെന്ന് മന്ത്രി കെ

വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ ഈ വിദ്യാർത്ഥിയുടെ തുടർപരിശോധനാ ഫലം വിപരീതമാണ്

യിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടു്

അതിനിടെ കൊറോണ വൈറസ് കോഴി ഇറച്ചിയിൽ നിന്ന് പടരുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കെതിരെ കർണാടകയിൽ മൃഗസംരക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു

പി യുടെ ഔലിയിലെ പർവതാരോഹക പരിശീലന കേന്ദ്രത്തിൽ സന്ദർശനത്തിയതായിരുന്നു മന്ത്രി

ഫാഷൻ വാരത്തോട് അനുബന്ധിച്ച് നടന്ന ഇന്ത്യാദിനാഘോഷത്തിലാണ് പ്രദർശനം നടന്നത്

ഇന്ത്യയിലെ വസ്ത്ര്യ്ക് നിർമ്മാണകലാകാരൻമാരെ പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നത്രാണ് പ്രദർശനമെന്ന് ബ്രിട്ടനിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിക്കുച്ചി ഘനശ്യാം പറഞ്ഞു

എൽ എ യുമായ വി

പ്രാഥമികാന്വേഷണത്തിൽ തെളിവ് ലഭിച്ചതിനെത്തുടർന്നാണ് വിജിലൻസ് ഡയറക്ടർ കേസെടുക്കാൻ അനുമതി തേടിയത് വെള്ളിയാഴ്ചയാണ് അനുമതി നല്കിക്കൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടത്

തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം

ഇതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ മത്സരങ്ങൾ പൂർത്തിയാവും

ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിംഗ്സും തമ്മിലാണ് ഉദ്ഘാടന മത്സരം